പ്രചാരണം ഊർജ്ജിതം ദേശീയ നേതാക്കൾ പ്രചാരണത്തിൽ തമിഴ്നാട്ടിൽ പ്രകടന പത്രിക പുറത്തിറക്കി അണ്ണാ ഡി എം കെ

തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റം വരുത്തി് ആയിരം വോട്ടർമാർക്ക് ഒരു പോളിംഗ് സ്റ്റേഷൻ

ഉപഭോക്തൃ അവകാശ സംരക്ഷണം ഉറപ്പാക്കാൻ ശക്തമായ നിയമമുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ

പശ്ചിമബംഗാളിൽ ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസ്സും എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട കേന്ദ്രമന്ത്രിമാരായ അമിത് ഷായും രാജ്നാഥ് സിംഗും മറ്റ് മുതിർന്ന നേതാക്കളും രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പി ക്കുവേണ്ടി ശ്രീ അമിത് ഷാ ഇന്നലെ പശ്ചിമബംഗാളിലെ പ്രചാരണത്തിലാണ്

പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ്സ് പ്രസിഡന്റുമായ മമതാ ബാനർജി ഇന്നലെ പ്രചാരണ പദയാത്രയിൽ പങ്കാളിയായി സി പി ഐഎം കോൺഗ്രസ്സ് സി പി ഐ ഫോർവേർഡ് ബ്ലോക്ക് എന്നീ കക്ഷികളുടെ സ്ഥാനാർത്ഥികളും വിവിധ തിരഞ്ഞെടിപ്പ് റാലികളിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ചാർഗ്രാം ബങ്കുറ എന്നിവിടങ്ങളിലാണ് സമ്മേളനം എഗ്ര രാംനഗർ എന്നിവിടങ്ങളിൽ നടക്കുന്ന പൊതുയോഗങ്ങളിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പങ്കെടുക്കും മുഖ്യമന്ത്രിയും ടി എം സി നേതാവുമായ മമതാ ബാനർജി പുരുളിയ ജില്ലയിൽ രണ്ട് റാലികളെ അഭിസംബോധന ചെയ്യും

വെള്ളിയാഴ്ച വരെ പത്രിക സമർപ്പിക്കാം കോൺഗ്രസ് ബിജെപി സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തുവന്നതോടെ സംസ്ഥാനത്ത് ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു കുറ്റ്യാടി ഒഴിച്ചുള്ള എല്ലാ സീറ്റിലും എൽ

എഫ് സ്ഥാനാർത്ഥികൾ പ്രചരണത്തിലാണ്

ഡി

ഇതിൽ ആറിടത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്

വെള്ളിയാഴ്ച വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം

തെരഞ്ഞെടുപ്പ് കമീഷന്റെ നിർദേശമനുസരിച്ച് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വരണാധികാരികൾ പത്രിക സ്വീകരിക്കുന്നത്

സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിലായി മറ്റ് രണ്ട് പൊതു സമ്മേളനങ്ങളിലും ശ്രീ നദ്ദ പങ്കെടുക്കും

അസം കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ പുതുചേരി എന്നിവിടങ്ങളിലും പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ട്

കോവിഡ് സാഹചര്യത്തിൽ വിദേശ ഇന്ത്യക്കാർക്കും പ്രവാസികൾക്കുമായി കേന്ദ്ര സർക്കാൻ നടപ്പാക്കിയ സമാശ്വാസ പദ്ധതികളെ കുറിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ ഇരു സഭകളിലും ഇന്ന് പ്രത്യേക പ്രസ്താവന നടത്തും

ഇതുൾപ്പെടെ അഞ്ച് ബ്ലില്ലുകൾ സഭയുടെ പരിഗണനയിൽ വരും രാജ്യസഭയിൽ രണ്ട് ്ബില്ലുകൾ ചർച്ചക്ക് വരും ജൽശക്തി മന്ത്രാലയവും റെയിൽവെ ടൂറിസം മന്ത്രാലയങ്ങളെ കുറിച്ചുളള ചർച്ചയും രാജ്യസഭയിൽ നടക്കും

രാഷ്ട്രപതി ഇന്നലെ വാരാണസി സോൻഭദ്ര മിർസാപൂർ എന്നീ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു

ഒരു റിപ്പോർട്ട്

അവകാശങ്ങൾ ലഭ്യമായില്ലെങ്കിൽ അത് നിയമം വഴി നേടിയെടുക്കാനുള്ള സംവിധാനങ്ങൾ മിക്ക രാജ്യങ്ങളിലുമുണ്ട്

കേന്ദ്ര ഉപഭോക്തൃ കാര്യ മന്ത്രി പീയുഷ് ഗോയൽ ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസ നേർന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ചലച്ചിത്ര താരങ്ങളടക്കം വൻ ശിഷ്യസമ്പത്തിനുടമയായിരുന്നു ഗുരു ചേമഞ്ചേരി രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട് കേരള കലാമണ്ഡലത്തിന്റെ വിശിഷ്ട സേവനത്തിനുള്ള പുരസ്ക്കാരമടക്കം നിരവധി പുരസ്ക്കാരങ്ങൾ കൈവരിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേർ ഗുരു ചേമഞ്ചേരിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി

വിദ്യാർത്ഥികളുടെ പരീക്ഷാ സമ്മർദ്ദം കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പേ ചർച്ചയിലേക്ക് മികച്ച പിന്തുണയാണ് വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും അദ്ധ്യാപകരിൽ നിന്നും ലഭിച്ചത്

പുതിയ പതിപ്പിലേക്ക് ആശയങ്ങൾ പങ്കുവയ്ക്കണമെന്ന് പ്രധാനമന്ത്രി ജനങ്ങളോട് ട്വിറ്ററിലൂടെ അഭ്യർത്ഥിച്ചു